ശ്രീനഗറിന്റെ ഉൾപ്രദേശമായ ഫതെ കദാൽ ഭാഗത്താണ്

ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് സി ആർ പി എഫും പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്

നാളെ ആരംഭിക്കുന്ന ദ്വിദിന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ ഉപരാഷ്ട്രപതി നയിക്കും

ഉച്ചകോടിയോട് അനുബന്ധിച്ച് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉപരാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും ആഗോള മാറ്റങ്ങൾക്കായി ആഗോള പങ്കാളികൾ എന്നതാണ് ഈ വർഷത്തെ ഏഷ്യ യൂറോപ്പ് ഉച്ചകോടിയുടെ പ്രമേയം

യുവതീപ്രവേശനം സംബന്ധിച്ച് സുപ്രീംകോടതി വിധി നിലനിൽക്കുന്ന സാഹചരൃത്തിൽ ശബരിമല കനത്ത സുരക്ഷാവലയത്തിലാണ് വിധിക്കെതിരെ പ്രതിഷേധം നടത്തുന്നവർ നിലയ്ക്കലിൽ സ്ഥാപിച്ച താൽക്കാലിക പന്തലുകൾ പോലീസ് നീക്കം ചെയ്തു ശബരിമല തീർത്ഥാടകരെയും വാഹനങ്ങളെയും തടയുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്നും ഇവർക്കെതിരെ കേസ് എടുക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

പരാതികൾ പോക്സോ ഇ ബോക്സിലൂടെ അറിയിക്കാനും കേന്ദ്രമന്ത്രി മനേകാഗാന്ധി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു മിക്ക കേസുകളിലും കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നോ മറ്റ് അടുത്ത ബന്ധുക്കളിൽ നിന്നോ ആയതിനാൽ പരാതികൾ പുറത്തുവരാറില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ലൈംഗിക പീഡനത്തിങ്ങന്റ അപമാനഭാരം കുട്ടി ജീവിതകാലം മുഴുവനും സഹിക്കേണ്ടി വരുന്നതായും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വൃക്തമാക്കുന്നുണ്ട് പോക്സോ നിയമമനുസരിച്ച് ഇത്തരം പരാതികൾ സമർപ്പിക്കുന്നതിന് കാലപരിധി നിലവിലില്പെന്നും നിയമ മന്ത്രാലയവുമായുള്ള ചർച്ചയ്ക്കു ശേഷം ശ്രീമതി ഗാന്ധി അറിയിച്ചു

ഹോഷങ്കാബാദ് ഛത്ര പോളി ഗാസിപ്പൂർ മുംബൈ വടക്ക് എന്നിവിടങ്ങളിലെ പ്രവർത്തകരുമായാണ് വൈകുന്നേരം നമോ ആപ്പിലൂടെ ശ്രീ മോദി ആശയവിനിമയം നടത്തുക മേരാ ബൂത്ത് സബ്സേ മസ്ബൂത് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സംവാദം

ഇന്നലെയാണ് മാർഗ്ഗരേഖ പുറത്തിറക്കിയത്

യുണിഫൈഡ് പെയ്മെന്റ് ഇന്റർഫെയ്സ് യുപിഐ സംവിധാനത്തിലൂടെ ബാങ്ക് അക്കൌണ്ടും ഇ വാലറ്റും തമ്മിൽ ബന്ധിപ്പിച്ച് ഇടപാട് നടത്താനുള്ള സൌകര്യം ഉപഭോക്താവിന് ലഭിക്കും

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

ഉന്നത മധ്യവർഗ്ഗ സാമ്പത്തിക ഇടപാടുകാരിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവച്ചതെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു

കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ റിപ്പോർട്ടാണ് ഈ വിവരം പുറത്തുവിട്ടത്

ഈ തട്ടിപ്പുക്കാരുടെയോ ഇതുമായി ബന്ധപ്പെട്ടു ബാങ്കുകളുടെയോ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായും മറ്റ് നടപടികൾ കൈകൊണ്ടു വരികയാണെന്നും വിജിലൻസ് കമ്മീഷണർ ഡോ

ഭാസിൻ അറിയിച്ചു

രാജൃത്തെമ്പാടുമുള്ള നൂറ്റിയെട്ട് പട്ടുൽപ്പാദകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് ഇതിൽ പത്ത് പേർ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നുള്ളവരും ഒൻപത് പേർ ജമ്മുകാശ്മീരിൽ നിന്നുമാണ്

നേരത്തെ ഹെൽമറ്റ് ധരിക്കുന്നതിൽ നിന്നും ഇവരെ പൂർണമായി ഒഴിവാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് ചണ്ഡിഗഡ് ഭരണകൂടം ആവശ്യമായ തീരുമാനം എടുക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി അതേസമയം രാജ്യത്തെമ്പാടും സിഖ് പുരുഷൻമാർക്ക് ഹെൽമറ്റ് ധരിക്കുന്നത് നിർബന്ധമല്ല

ദുർഗ്ഗാദേവിയുടെ എട്ടാമത്തെ അവതാരമായ മഹാഗൌരിയെ ആരാധിക്കുന്ന ദിവസമാണ് ഇന്ന്

ഖഷോഗിയുടെ തിരോധാനം സംബന്ധിച്ച വിഷയത്തിൽ കൃത്യമായ മറുപടി ഉടൻ ലഭ്യമാകുമെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തു സൌദി രാജകുമാരൻ മൊഹമ്മദ് ബിൻ സൽമാനുമായി ടെലഫോണിൽ ആശയവിനിമയം നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഖഷോഗിക്കായി ഇതിനോടകം തിരച്ചിൽ ആരംഭിച്ചതായും ഇത് പൂർണ്ണ തോതിൽ നടപ്പാക്കുമെന്നും സൌദി രാജകുമാരൻ അറിയിച്ചെന്ന് യു എസ് പ്രസിഡന്റിന്റെ ട്വീറ്റിൽ പറയുന്നും ഇസ്താംബൂളിലെ സൌദി കോൺസുർല്ലേറ്റിൽ എത്തിയ ഖഷോഗിയെ പിന്നീട് കാണാതാവുകയായിരുന്നു

ക്യൂബയ്ക്കാണ് ഈ ഇനത്തിൽ സ്വർണ്ണം നൈജീരിയൻ താരത്തിനാണ് വെള്ളി മെഡൽ

റഷ്യ ഒന്നാം സ്ഥാനത്തും ചൈന രണ്ടാമതും ജപ്പാൻ മൂന്നാം സ്ഥാനത്തും തുടരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗവൺമെന്റ് എടപ്പാടി കെ വകുപ്പുകളിലേക്കും പൊതുമ്മേഖ്ലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള നിയമനങ്ങളിൽ കായിക്താർങ്ങൾക്കുള്ള സംവരണം നടപ്പാക്കുമെന്നും തമിഴ്ന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ചെന്നൈയിൽ വിവിധ കായിക സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി